തമിഴ്നാട്ടിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ന് തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

മുന്നൊരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പു കമ്മീഷൻ വിലയിരുത്തി

കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി ആമൃത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

റോ റോ വെസലുകളുടെ സേവനം വ്യാപാര മേഖലക്ക് ഗുണം ചെയ്യുന്നതോടൊപ്പം കൊച്ചിയിലെ റോഡുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും സഹായകമാകും കപ്പൽശാലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ തന്നെ ഏക മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലന സൌകര്യവും ലഭിക്കും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ സൌത്ത് കോൾ ബർത്തിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും

കേന്ദ്ര മന്ത്രിമാർ കേരള ഗവർണർ മുഖ്യമന്ത്രി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രാദേശിക അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചരിപ്പെട്ടുത്തുന്നതിനും വാണിജ്യം അഭിവൃത്തിപ്പെടുത്തുന്നതിനും പ്രസ് യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് പദ്ധതികളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ കേരളത്തിന്റെയും ദക്ഷിണേന്ത്യയുടെയും തന്നെ വ്യാവസായിക ആവാസവ്യവസ്ഥയിൽ അതീവപ്രാധാന്യം ഉള്ളതാണെന്നും പദ്ധതി കേരളത്തിലെ വ്യാവസായിക സാമ്പത്തിക വികസനത്തിൽ പുതു അധ്യായം രചിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ കൊച്ചിയിൽ പറഞ്ഞു

ചെന്നൈയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ചെന്നൈ ബീച്ച് മുതൽ അതിപ്പട്ട് വരെയുള്ള നാലാമത്തെ റെയിൽ പാതയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

തൈയ്യൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്ന്റ്യേള്ജിയിലെ ഡിസ്കവറി ക്യാമ്പസിന്റെ ശിലാസ്ഥാപനവും പ്രധാന്ദമിന്തി നിർവ്വഹിച്ചു

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭൃന്തരമന്ത്രി അമിത്ഷാ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ജീവതൃാഗം ചെയ്ത സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു പോലീസ് സേനയുടെ ജീവതൃാഗം രാഷ്ട്രം ഒരിക്കലും മറക്കില്ലെന്ന് ശ്രീ

കുർണൂൽ ജില്പയിൽ മദപുരത്തിനു സമീപം ദേശീയപാതയിൽ ലോറിയും മിനി ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടം

ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദ്ദു

മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളോട് അദ്ദേഹം അനുശോചനം അറിയിച്ചു

സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി

കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ മാർഗ്ഗങ്ങളും നിർബന്ധമായും തുടരണം

രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ഓഫീസുകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ പ്രവേശിപ്പിക്കരുതെന്നും മാർഗ്ഗുരേഖയിൽ പറയുന്നു

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാന പോലീസ് മേധാവി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എഫ്നീവരുമായി ചർച്ച നടത്തി വൈകിട്ട് ചീഫ് സെക്രട്ടറി മറ്റ് വകൂപ്പ് സ്ക്രട്ടറിമാർ എന്നിവരുമായി കമ്മീഷൻ ആശയവിനിമയം നടത്തും

സി

വിട്ട മാണി സി കാപ്പൻ എം

അതേസമയം മാണി സി കാപ്പൻ പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു

വൈകിട്ട് അഞ്ചിന് ഒഡീഷ നോർത്ത് ഈസ്റ്റ് യൂണൈറ്റഡിനെ നേരിടും

ബെൻ സ്റ്റോക്സ് ഡാൻ ലോറൻസ് ക്യാപ്റ്റൻ ജോ റൂട്ട് ഡോം സിബ്ലി റോറി ബേൺസ് എന്നിവരുടെ വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിന് നഷ്ടമായത് രണ്ടാംദിവസം ഇന്ത്യക്ക് വേണ്ടി ്ആൾപ്പിൻ മൂന്ന് വിക്കറ്റും അക്ഷർ പട്ടേൽ ഇഷാന്ത് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി

രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന സംരംഭമാണ് ജെൻഡർ പാർക്കെന്ന് അദ്ദേഹം പറഞ്ഞു ജെൻഡർ പാർക്കിലെ ജെൻഡർ മ്യൂസിയം ലൈബ്രറി കൺവെൻഷൻ സെന്റർ ആംഫി തിയേറ്റർ എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്

മണ്ണുമൂടിയ തുരങ്കത്തിൽ നിന്ന് ഇന്ന് രാവിലെ രണ്ടു മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു